വാർത്താ വിനിമയ ഇലക്ട്രോണിക്സ് മന്ത്രാലയവും നിതി ആയോഗും ചേർന്നാണ് അഞ്ച് ദിവസത്തെ ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി സാമൂഹിക ശാക്തീകരണ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് മഹാമാരിക്കെതിരായ തയ്യാറെടുപ്പിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും ആരോഗ്യ സംരക്ഷണം കൃഷി വിദ്യാഭ്യാസം സ്മാർട്ട് മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിൽ സാമൂഹിക പരിവർത്തനത്തിനും ശാക്തീകരണത്തിനുമായി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിന് ആശയങ്ങൾ കൈമാറുകയാണ് ആഗോള ഉച്ചകോടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവേഷണം നയം നവീകരണം എന്നീ മേഖലകളിലെ വിദഗ്ദ്ധരും പ്രതിനിധികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉച്ചകോടിയിൽ പങ്കുചേരും

പ്രതിദിന കോവിഡ് മുക്തരുടെ എണ്ണം ഇന്നലെ വർദ്ധിച്ചു

വിവിധ ജില്ലകളിൽ രണ്ടര ലക്ഷത്തിലേറെപ്പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്

വിശദാംശങ്ങളുമായി ജഷിതകുമാരി രുപ്പ സംസ്ഥാനത്ത് സമ്പർക്കം വഴി കോവിഡ് രോഗബാധ വർദ്ധിക്കുകയാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി രംഭ മൂന്ന് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫിസിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തി രണ്ടുദിവസത്തിനകം പരിശോധനകൾ പൂർത്തീകരിച്ച ശേഷം പ്രവർത്തനം സാധാരണനിലയിലാകുമെന്ന് അധികൃതർ അറിയിച്ചു അഴിയൂർവില്ലേജ് ഓഫിസ് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫിസ് പ്രവർത്തനം താത്കാലികമായി നിർത്തിവെച്ചു

കോവിഡ് പ്രതിരോധം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ സിറ്റി പൊലീസ് കമ്മീഷണർ ടി നാരായണൻ എന്നിവർ നീണ്ടകരയിലും ചവറയിലും മിന്നൽ സന്ദർശനം നടത്തി നീണ്ടകരയിൽ രോഗബാധിതരുണ്ടാവുന്ന സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നതിന് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌകര്യം ഉടൻ ഏർപ്പെടുത്താൻ കലക്ടർ നിർദേശം നൽകി

രുമ ട്രയിൻ യാത്രയ്ക്കിടെ കോവിഡ് വ്യാപന സാധ്യത കുറയ്ക്കുന്നതിനായി നിരവധി ക്രമീകരണങ്ങൾ വരുത്തിയെന്ന് ദക്ഷിണ റെയിൽവേ

യാത്രക്കാർ സാമൂഹിക അകലം പാലിക്കുന്നതും മാസ്ക് ധരിക്കുന്നതും ഉറപ്പു വരുത്തുന്നതിനൊപ്പം പാചകം ചെയ്ത ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതും നിർത്തിയിട്ടുണ്ട്

സി കോച്ചുകളിലെ താപനില ക്രമീകരിക്കുകയും കർട്ടനുകൾ നീക്കം ചെയ്യുകയും ചെയ്തതായി അധിക്വതർ അറിയിച്ചു രുദ ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നര കോടി കടന്നു

ബിയുടെ പത്ത് പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

വി സബ്സ്റ്റേഷൻ ശിലാസ്ഥാപനവും ഇതോടൊപ്പം വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യമന്ത്രി നിർവഹിക്കും രുക ഖാദികൈത്തറി മേഖലകൾക്ക് ഗവൺമെന്റ് ആവശ്യമായ പരിഗണന ഉറപ്പാക്കുമെന്ന് മന്ത്രി ടി

കോഴിക്കോട് നൊച്ചാട് പഞ്ചായത്തിലെ മുളിയങ്ങൽ ഖാദി ഉത്പ്പാദന വിപണന കേന്ദ്രത്തിന്റെയും കെട്ടിട പുനരുദ്ധാരണ പ്രവൃത്തിയുടേയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മേഖലകളിൽ ജോലിചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂലിയും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇക്കാര്യങ്ങളിൽ അനുകൂലമായ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനും മുംബൈ ഇന്ത്യൻസിനും ജയം ദുബായിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ പത്ത് വിക്കറ്റിനാണ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയത്

ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും രുദ തിരുവനന്തപുരം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടർ ഉൾപ്പെടെ ജീവനക്കാരെ സസ്പെന്റ് ചെയ്ത നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളജുകളിലും ഇന്ന് ഡോക്ടർമാർ രണ്ട് മണിക്കൂർ ഒ

നാളെ മുതൽ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളജുകളിലും അനിശ്ചിതകാല ഒ

രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരുമാണ് സസ്പെൻഷനിൽ കഴിയുന്നത്

പുതുശ്ശേരി സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കൊല്ലപ്പെട്ടത്

രുദ ഇടുക്കി ചിത്തിരപുരം ഹോംസ്റ്റേയിൽ വ്യാജമദ്യം കഴിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു ഹോംസ്റ്റേ ഉടമയുടെ ഡ്രൈവറായിരുന്ന കാസർകോട് സ്വദേശി ജോബിയാണ് മരിച്ചത് രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു രുക കോട്ടയം എരുമേലിയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു പിണ്ണാക്കനാട് കാളകെട്ടി സ്വദേശി ഇലവുങ്കൽ ടി ദിലീപാണ് മരിച്ചത് ദര ഇന്ന് ലോക ആവാസ ദിനം

എൻ ആഹ്വാനപ്രകാരം ആവാസദിനമായി ആചരിക്കുന്നത് വ്യത്യസ്ത ജീവജാലങ്ങളുടെ പരസ്പര പൂരക ജീവിതക്രമമായ ജൈവവൈവിധ്യം നിലനിർത്താൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനും കൂടിയാണ് ഈ ദിനം

സംഘത്തിലെ രണ്ടുപേർ ഓടി രക്ഷപെട്ടു ചതുരംഗപ്പാറ കുന്നേൽ അനൂപ് തോമസ് ഉടുമ്പൻചോല പന്തിരിക്കൽ റബിൻ പി ദേവസ്യ എന്നിവരാണ് അറസ്റ്റിലായത് ദരദ കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച മെറ്റേർണിറ്റി ബ്ലോക്കിന്റെയും പുതുക്കിയ അത്യാഹിത വിഭാഗത്തിന്റെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ മന്ത്രി കെ

രണ്ടു കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണവും അനുബന്ധ പ്രവർത്തനവും പൂർത്തിയാക്കിയത്